വ്യാപാരികളുടെ ജി

ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും സുരക്ഷാ സേന അഞ്ച് മാവോയിസ്റ്റുകളെ വധിച്ചു

ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം ഉത്രട്ടാതി വള്ളംകളിയെ വരവേറ്റ് ആറന്മുള

അതിർത്തി ലംഘിച്ച് ഇന്ത്യയിലേക്ക് കടക്കുന്ന പാക്കിസ്ഥാൻ പൌരൻമാരെ തിരികെ പോകാൻ ഇന്ത്യൻ സൈന്യം അനുവദിക്കില്ലെന്ന് ശ്രീ രാജ്നാഥ്സിംഗ്മുന്നറിയിപ്പ് നൽകി

ഇതുവരെ പാൻകാർഡ് അടിസ്ഥാർമാർക്കിയു ംരജിസ്റ്റർ ചെയ്യാമായിരുന്നു ആധാർ വിവരങ്ങൾ നൽകാൻ വിസ്സമ്മത്മുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തിയാകൂറു രജിസ്ട്രേഷൻ

പ്രത്യേക സാമ്പത്തിക മേഖലകളിലേക്ക് സാധന സാമഗ്രികൾ വിതരണം ചെയ്യാതെ അവയെത്തിച്ചതായി കാണിച്ച് രസീതുകൾ നിർമ്മിച്ചാണ് തട്ടിപ്പ് നടത്തിയത്

കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചത്

കടക്കെണിയിലായതും നിർമ്മാണം നിലച്ചതുമായ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാനാണ് പതിനായിരംകോടി അനുവദിക്കുന്നത് രാജ്യത്തെ മൂന്നരലക്ഷം പദ്ധതികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും

യിലെ നികുതിതിരികെ നൽകുന്നതിനായി പൂർണമായഇലക്ട്രോണിക്സംവിധാനു ഏർപ്പെടുത്തുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

കയറ്റുമതിരംഗത്തിന് ഊർജ്ജം പകരുന്നതിനായി ഇന്ത്യ പല രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ദുബായ് ഷോപിംഗ് ഫെസ്റ്റിവലിന്റെ മാതൃകയിൽ കരകൌശലവസ്തുക്കൾ യോഗ വിനോദസഞ്ചാരം ടെക്സ്റ്റൈയിൽ തുകൽവ്യാപാരം എന്നീ മേഖലകളിൽ ഇന്ത്യയിലും ഷോപിംഗ് ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു

ഐ

ഗഡ്ചിറോളി ജില്ലയിലെ ഗ്യാരാപ്പതി വനമേഖലയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം

പൊലീസിന്റെ തിരിച്ചടിയിലാണ് രണ്ട് നക്സലുകൾ കൊല്ലപ്പെട്ടത്

മാവോയിസ്റ്റുകൾ ഉണ്ടെന്ന രഹ്സ്യവിവരത്തെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ തെരച്ചിലിനിടെയായിരുന്നു വെടിവെയ്പ്പ്

വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി രാജ്യത്തെ കഠിനാധ്വാനികളായ എൻജിനീയർമാർക്ക് ആശംസകൾ നേർന്നു

പ്രതിഭാധനനായ എൻജിനീയറായിരുന്ന എം വിശ്വേശ്വരയ്യരുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആദരാഞ്ജലികൾ അർപ്പിച്ചു

റെയിൽവേയുടെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പാക്കിയതായി ആകാശവാണി ലേഖകൻ റിപ്പോർട്ടു ചെയ്തു

റെയിൽവേ യാത്രികരുടെ സുരക്ഷ വർധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒട്ടനവധി പദ്ധതികൾ നടപ്പാക്കി

സംസ്ഥാനത്തെ യുവാക്കളുമായി ആശയ വിനിമയം നടത്തിയ ശേഷം മന്ത്രി അറിയിച്ചതാണ് ഇക്കാര്യം യുവാക്കളുടെ കായിക താൽപര്യം വർധിപ്പിക്കൂന്നതിനായി കേന്ദ്ര കായിക മന്ത്രാലയം നിരവധി പദ്ധതികൾ ആസൂത്രുൺ ്ചെയ്തിട്ടുണ്ട് പ്രാദേശിക ഭരണകൂടവുമായി സഹകരിച്ചായിരിക്കും പ്ലദ്ധ്തികൾ നടപ്പാക്കുകയെന്നും മന്ത്രി പറഞ്ഞു

പാകിസ്ഥാനിലെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന പ്രദേശമാണ് ബലൂചിസ്ഥാനെന്ന് അവകാശ സംരക്ഷണസമിതി വാർത്താക്കുറിപ്പിൽ പറയുന്നു

ലക്നൌവിൽ നടന്ന യു

പുതിയ സ്റ്റാർട്ടപ് സംരംഭങ്ങൾക്കായി ഗവൺമെന്റ ആയിരം കോടി രൂപയുടെ സ്റ്റാർട്ടപ് ഫണ്ട് രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

സമാപന ഘോഷയാത്രയോടനുബിസ്ടിച്ച് ്തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടുമണി മുതൽ രാത്രി എട്ടുമണ്ണൂവിര്ര തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗതക്രമീകരണം ഏർപ്പെടുത്തി

സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളും എട്ടു ദിവസത്തെ തുടർച്ചയായ അവധിക്ക് ശേഷം നാളെ തുറക്കും

ഹിമാചൽപ്രദേശിലെ ധരംശാലയിൽ വൈകു ന്നരം ഏഴ്മണിക്കാണ് ആദ്യമത്സരം

റെയിൻബോയിലും മറ്റ് ഫ്രീക്വൻസികളിലും വൈകുന്നേരം പ്രക്ഷേപണംചെയ്യും

രാംസ്പൂർഡായ ഡെൻമാർക്കിന്റെ വിക്ടർ സെവൻ ഡെസനെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യ കിരീടം നേടി യത്

ലീഗിലെ നിലവിലെ ചാമ്പൃന്മാരായ ബാഴ്സലോണ വലൻസിയയെ രണ്ടിനെതിരെ നാല്ഗോളുകൾക്ക് തകർത്തു

ലെവന്റയ്ക്കായി ബോറിയമയോറൽ ഗോൺസാലോമെലേറോ എന്നിവർ ലക്ഷ്യം കണ്ടു നാലുകളിയിൽ നിന്ന് എട്ടു പോയന്റുമായി റയൽ രണ്ടാംസ്ഥാനത്താണ്

മത്സരത്തിൽ ബാഴ്സ നിലവിൽ നാലാംസ്ഥാനത്താണ്

സെർജിയോ അഗ്യൂറോ റോഡ്രിഗോ എന്നിവരാണ് മാഞ്ചസ്റ്ററിന്റെ ആശ്വാസഗോൾ നേടിയത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റി രണ്ടാം സ്ഥാനത്താണ്